പുതിയ ദേശീയ വിദ്യാഭ്യാസ് നിയത്തിന് കേന്ദ്ര മന്ത്രിസഭാ അംഗീകാരം

രാജ്യത്ത് കോവിപ്പ് രോഗമുക്തി നേടിയവരുടെ എണ്ണം ദ് പത്തു ലക്ഷത്തിലേയ്ക്ക്

അഞ്ചു ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്

ഇരുരാജ്യങ്ങളിലെയും പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ധനസഹായത്തോടെയാണ് കോടതി ്മന്ദിരം നിർമ്മിച്ചത്

പാഠ്യേതര പ്രവർത്തനങ്ങൾക്കൂ കൂടി പ്രാമുഖ്യം നൽകിക്കൊണ്ട് ആറാം ക്ലാസ് മുതൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകാനാണ് പുതിയ നയത്തിലെ നിർദ്ദേശം മാനവ വിഭവശേഷി മന്ത്രാലയം ഇനി വിദ്യാഭ്യാസ മന്ത്രാലമെന്നാകും അറിയുകയെന്നും കേന്ദ്രമന്ത്രി രമേശ് പൊക്രിയാൽ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

ആർ

കസ്തൂരി രംഗന്റെ നേതൃത്തിലുള്ള വിദഗ്ദ്ധ സമിതിയാണ് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ശുപാർശ ചെയ്തത്

സ്വാതന്ത്രൃദിന ചടങ്ങുകൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തും വിശദാംശങ്ങളുമായി പാർവതി വിജയൻ

രാത്രികാല യാത്രാനിരോധനവും നീക്കിയിട്ടുണ്ട്

സംസ്ഥാനങ്ങ്ളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് പുതിയ മാർഗനിർദ്ദേശങ്ങളെന്ന് കേന്ദ്രസർക്കാർ വ്യക്തമാക്കി രാജ്യാന്തര വിമാന സർവീസുകൾ വന്ദേ ഭാരത് മിഷനു കീഴിൽ മാത്രം സാഹചര്യങ്ങൾ പരിഗണിച്ച് മറ്റു വിമാന സർവീസുകളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും

ആളുകൾ വൻതോതിൽ കൂടുന്ന സമ്മേളനങ്ങൾക്കുള്ള നിലവിലെ നിയന്ത്രണവും തുടരും അന്തർസംസ്ഥാന യാത്രകൾക്കും ചരക്കു നീക്കത്തിനും നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കില്ല

എസ് ഡോളർ സഹായം നൽകുന്ന പദ്ധതിയ്ക്ക് കഴിഞ്ഞ ഏപ്രിലിൽ എ ഡി ബി അംഗീകാരം നൽകിയിരുന്നു

ഇതിന്റിമുമ്പ് മൂന്നുതവണ നിയമസഭാ സമ്മേളനം വിളിച്ചുചേർക്കണ്മെന്ന സംസ്ഥാന മന്ത്രിസഭയുടെ നിർദ്ദേശം ഗവർണർ മടക്കിയിരുന്നു അതിനിടെ ബി ജെ

എൽ എ മാർ കോൺഗ്രസിൽ ചേർന്റ്തുമായി ബന്ധപ്പെട്ട ഹർജി രാജസ്ഥാൻ ഹൈക്കോടതി ഇന്നു പ്രിഗണിക്കും

ജെ പി എം എൽ

ജെ പി എം എൽ എ മാരുടെ കൂറുമാറ്റത്തിനെതിരെയുള്ള ദിൽവാറിന്റെ ഹർജിയിൽ ബഹുജൻ സമാജ് പാർട്ടിയും കക്ഷിചേർന്നിട്ടുണ്ട്

ആയുഷ്മാൻ പദ്ധതി വന്നതോടെ ജമ്മുവിലെ ആരോഗ്യ മേഖല വളരെ ഏറെ മെച്ചപ്പെട്ടതായാണ് വിലയിരുത്തുന്നത്

രാജ്യത്തെ ഏറ്റവും കൂടുതൽ രോഗമുക്തി നിരക്കുള്ള സംസ്ഥാനമാണ് ഡൽഹി

ഇന്ന് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മല്ലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം എറണാകു്ളം ആലപ്പുഴ തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്നമാകാനും സാധ്യതയുണ്ട് കേരള തീരത്ത് നിന്ന് മത്സ്യതൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കർശന മുന്നറിയിപ്പുണ്ട്

ഭാവി കാഴ്ചപ്പാട് സംബന്ധിച്ച മാർഗരേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച നടന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് ധനകാരൃ ബാങ്കിംഗ് സംവിധാനത്തിന്റെ സുപ്രധാനമായ പങ്ക് യോഗം ചർച്ചു ചെയ്തു

മാത്രമാണ് ആയിരത്തോളം തീർഥാടകർ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി വിശുദ്ധ നഗരമായ മക്കയിൽ നിന്ന് യാത്ര ആരംഭിച്ചത്